ഇന്ന് പ്രതിഷേധദിനം

ഇരു മുടിക്കെട്ടുമായി ശബരിമല സന്നിധാനത്തേയ്ക്ക് പോകാ നെത്തിയ സുരേന്ദ്രനെയും ബിജെപി തൃശൂർ ജില്ലാ പ്രസിഡണ്ട് നാഗേഷ് അടക്കം കൂടെയുണ്ടായിരുന്ന മൂന്ന് പേരെയും രാത്രി എട്ട് മണിയോടെ ക്രമസമാധാന പ്രശ്ന ത്തിന്റെ പേരിലാണ് എസ് പി യതീഷ്ചന്ദ്രയുടെ നേതൃത്വത്തിൽ കസ്റ്റഡിയി ലെടുത്തത് തുടർന്ന് ചിറ്റാർ പൊലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി പുലർച്ചെ സുരേന്ദ്രനെ പത്തനംതിട്ട ജില്ലാ ആശുപ ത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി

ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ദേശീയ പാതകളിൽ രാവിലെ പത്തു മുതൽ പതിനൊന്നര വരെ വാഹനം തടയുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്തു പറഞ്ഞു

സെക്രട്ടേറിയറ്റിനകത്തേക്ക് കടക്കാൻ പ്രവർത്തകർ ശ്രമി ച്ചത് പൊലീസ് തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടാ യത് പൊലീസ് ലാത്തി വീശുകയും ജലപീരങ്കി പ്രയോ ഗിക്കുകയും ചെയ്തു ഒരു ബി ജെ പി പ്രവർത്തകന് പരിക്കേറ്റു കലകലകലകലകലകല സുരേന്ദ്രന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ബി ജെ പി പ്രവർത്തകർ ഇന്നലെ രാത്രി കണ്ണൂർ ടൌൺ പൊലീസ് സ്റ്റേഷനിലേയ്ക്ക് മാർച്ച് നടത്തി തുടർന്ന് സ്റ്റേഷന് മുന്നിൽ നാമജപവും നടത്തി

കലകലകലകലകലകലക രാഷ്ട്രീയ ലാഭത്തിനുവേണ്ടി ബി ജെ പി ശബരിമല വിഷയത്തെ ഉപയോഗപ്പെടുത്തുകയാണെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കുറ്റപ്പെടുത്തി ഇന്നലെ നടത്തിയ ഹർത്താലിലൂടെ

വിശ്വാസികളോടോ വിശ്വാസത്തോടോ ആർ എസ് എസ്സിനും ബി ജെപിക്കും കടപ്പാടില്ലെന്നും യെച്ചൂരി ആരോപിച്ചു അയ്യപ്പഭക്തർ നേരിടുന്ന ദുരിതങ്ങൾ നേരിട്ടുകണ്ടു മനസ്സിലാക്കാൻ മൂന്ന് കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ശ ബരിമല സന്ദർശിക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടൂർപ്രകാശ് വി എസ് ശിവകുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് ശബരിമലയിലേക്ക് പോകുന്നത്

ശബരിമല വിഷയുമായി ബന്ധപ്പെട്ട് വിജ യദശമിക്കും മണ്ഡലകാല ആരംഭമായ വൃശ്ചികം ഒന്നിനും ഹർത്താൽ നടത്തിയ ഹിന്ദുത്വ ശക്തികൾക്ക് ഭക്തി യാ ണെന്നും ക പട മുല്ല പ്പളളി പറഞ്ഞു ശബരിമലയിൽ ഇന്നും വൻഭക്തജനതിരക്ക് പുലർച്ചെ നട തുറന്നപ്പോൾ ദർശനത്തിനായി കാത്തു നിന്ന ഭക്തരുടെ നിര വലിയ നടപ്പന്തൽ പിന്നിട്ടിരുന്നു കനത്ത സുരക്ഷയിലും സുഗമമായി ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിന് എല്ലാ ക്രമീകരണങ്ങളും ദേവസ്വം ബോർഡും വിവിധ ഗവൺമെന്റ് വകുപ്പുകളും ഏർപ്പെ ടുത്തിയിട്ടുണ്ട്

പൊലീ സ് ഫോറസ്റ്റ് ഫയർഫോഴ്സ് റവന്യൂ ദേവസ്വം ബോർഡ്ആരോഗ്യവകുപ്പ് എന്നിവയിലെഉദ്യോഗസ്ഥ സംഘമായിരിക്കും എമർജൻസി ഓപ്പറേഷൻ സെന്ററു കളിൽ ഉണ്ടാവുക

നിലയ്ക്കലിൽ നിന്നും പമ്പയിലേയ്ക്കാണ് ആദ്യ സർവീ സ് മന്ത്രി കടകംപളളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു

നാളെ രാവിലെ മുതൽ ദുർബലപ്പെടാനിടയുണ്ട്

കടൽ പ്രക്ഷുബ്ധമാകും സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്

അതേസമയം ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായും കേന്ദ്രം അറിയിച്ചു

ആറ് ജില്ലകളിലാണ് ചുഴലിക്കാറ്റ് നാശം വിത ച്ചത്

രാജ്യത്തെ എല്ലാ യോഗ പ്രകൃതി ചികിത്സാ കേന്ദ്രങ്ങളിലും ഇന്ന് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും ഒന്നാമത് ദേശീയ പ്രകൃതിചികിത്സാ ദിനാചരണ ത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് രാവിലെ കണ്ണൂർ മട്ടന്നൂരിൽ മന്ത്രി കെ കെ ശൈലജ നിർവഹി ക്കും

പ്രകൃതിചി കിത്സാ മെഡിക്കൽ ക്യാമ്പും ബോധവത്ക്കരണ ക്ലാസും ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തും ഐ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ഗോകുലം കേരള എഫ് സി നിലവിലെ ചാമ്പ്യൻമാരായ മിനർവ പഞ്ചാ ബിനെ നേരിടും കോഴിക്കോട് കോർപറേഷൻ ഇ എം എസ് സ്റ്റേഡിയത്തിൽ രാത്രി ഏഴരയ്ക്കാണ് മത്സ രം അഞ്ച് പോയിന്റോടെ ഗോകുലം അഞ്ചാം സ്ഥാന ത്താണ്

ഗ്രൂപ്പ് ബിയിൽ ആദ്യ മൂന്ന് മത്സരങ്ങളിൽ വിജയിച്ച ഇന്ത്യയും ഓസ്ട്രേലി യയും നേരത്തെ സെമിയിൽ പ്രവേശിച്ചിട്ടുണ്ട് ജയ്പ്പൂരിൽ ദേശീയ സ്കൂൾ സീനിയർ ഫുട്ബോൾ ചാമ്പൃൻഷിപ്പിൽ കേരളം പ്രീകാർട്ടറിൽ കടന്നു ഇന്ന് അരുണാചൽ പ്രദേശുമായാണ് പ്രീകാർട്ടർ മത്സരം

വയനാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രമേളയും ഇന്നാരംഭിക്കും

ഇലക്ട്രോണിക് മാലിന്യങ്ങൽ ഉൾപ്പെടുന്ന ഖര മാലിന്യങ്ങളിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിച്ച് കെ എസ് ഇ ബിയ്ക്ക് നൽകുന്ന പദ്ധതിയാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു തൊടുപുഴയിൽ പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കാൻസർ ചികിത്സയ്ക്കായി മെച്ചപ്പെട്ട സംവിധാന ങ്ങൾ ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി കെ കെ ശൈലജ പറ ഞ്ഞു എല്ലാ ജില്ലാ ആശുപത്രികളിലും ്മികച്ച പാലിയേ റ്റീവ് കെയറും ക്യാൻസർ നേരത്തെ കണ്ടെത്താൻ സംവി ധാനവും ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു കളമ ശ്ശേരി ഗവൺമെന്റ് മെഡിക്കൽ കോളജിൽ സംഘടിപ്പിച്ച എറണാകുളം ജില്ലാതല ക്യാൻസർ നിയന്ത്രണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

പ്രകൃതി ദുരന്തത്തിൽ ഏറ്റവുമധികം നാശനഷ്ടം നേരിട്ട ഇടുക്കി ജില്ലക്ക് പുനർനിർമ്മി തി യിൽ ഗവൺമെന്റ് പ്രത്യേക പരിഗണന നൽകുമെന്ന് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു

കൊല്ലം ദിണ്ഡിഗൽ ദേശീയ പാതയിൽ മുണ്ടക്കയം മുതൽ കുമളി വരെ ശാക്തീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു മന്ത്രി

തമിഴ്നാട് സ്വദേശികളായ കാർത്തികേയൻ ബാബു എന്നിവരാണ് മരിച്ചത്

ഇവർ സഞ്ചരിച്ച വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടമാ യതാണ് അപകടകാരണമെന്ന് പൊലീസ് പറഞ്ഞു

അസുഖത്തെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു

ആകാശ വാണിയുടെ എ ഗ്രേഡ് നാടകനടനായിരുന്നു അബ്ദുള്ള

അറബിക്കഥ ഗദ്ദാമ സുഡാനി ഫ്രം നൈജീരിയ തുടങ്ങിയവയാണ് ശ്രദ്ധേയചിത്രങ്ങൾ മുഹബത്തിൻ കുഞ്ഞബ്ദുളള എന്ന ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ചുവരികയായിരുന്നു

എ പി ജെ അബ്ദുൾക ലാമാണ് ഉദ്ഘാടനം ചെയ്തത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ഓൺലൈൻ സേവനങ്ങൾ കുറഞ്ഞ ചെലവിൽ ജനങ്ങളിലെത്തിക്കുന്നതിൽ അക്ഷയ വഹി ക്കുന്ന പങ്ക് വളരെ വലുതാണ് സംസ്ഥാനത്ത് നിലവിൽ

അക്ഷയ

അക്ഷയകേന്ദ്രങ്ങളെ ബ്രാന്റഡ് ആക്കി മാറ്റാനും ഏകീകൃത രൂപം നൽകാനും ഗവൺമെന്റ് പദ്ധതി തയ്യാ റാക്കിയിട്ടുണ്ട് എല്ലാ കേന്ദ്രങ്ങൾക്കും നീല നിറം നൽകും ഇതോടൊപ്പം ജീവനക്കാർക്ക് യൂണിഫോമും ഏർപ്പെടുത്തും കാഞ്ഞങ്ങാട് പാണത്തൂര് കാണിയൂർ റെയിൽപാത യ്ക്ക് ചെലവാകുന്ന തുകയുടെ പ്രകുതി അനുവദിക്കുന്ന കാര്യം മന്ത്രിസഭ പരിഗണിക്കുമെന്ന് കർണ്ണാടക മുഖ്യ മന്ത്രി എച്ച് ഡി കുമാരസ്ഥാമി ഉറപ്പു നൽകിയതായി കർമ്മ സിമിച്ചു ഭാർവാഹികൾ അറിയിച്ചു